ഏഷ്യൻ ഇൻഫ്രാസ്ട്രെക്ച്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ മൂന്നാമത് വാർഷികയോഗം പ്രധാനമന്ത്രി നരേന്ദ്ര്മോദി ഇന്ന് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും

ഇന്ന് അന്താരാഷ്ട്രമയക്കുമരുന്ന് മനുഷ്യക്കടത്ത് വിരുദ്ധദിനം ആശുപത്രികൾക്ക് ഗുണനിലവാരം കുറഞ്ഞ കൈയ്യുറകൾ വാങ്ങി യെന്ന് ആരോപണം സംബന്ധിച്ച് അന്വേഷണത്തിന് മന്ത്രി കെ കെ ശൈലജ ഉത്തരവിട്ടു ഫിഫ ലോകകപ്പ് പ്രീകാർട്ടറിൽ സ്പെയിൻ റഷ്യയുമായും ഉറുഗ്വേ പോർച്ചുഗലുമായും ഏററുമുട്ടും ള്ള ൽ ശ്ര ശ ഊൺജം ഭവ ന നിർമ്മാണം ഭക്ഷ്യ സം സ് ക രണം അടി സ്ഥാനസൌകര്യവികസനം എന്നീ മേഖലകളിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ യു എ ഇ ക്ക് താല്പര്യം വർദ്ധിച്ചുവരികയാണെന്ന് യു എ ഇ വിദേശകാര്യ മന്ത്രി ഷെയ്ക്ക് അബ്ദുല്ലാബിൻ സായദ് അൽ നഹിയാൻ അറിയിച്ചു ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് വ്യാപാരം നിക്ഷേ പം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം സംബ ന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങളിലെ ജനങ്ങൾ തമ്മിലെ ബന്ധവും ചർച്ചാവിഷയമായി ഒഴാഴ്ചത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ യു എ ഇ വിദേശകാ ര്യമന്ത്രി വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ്മായും കൂടിക്കാഴ്ച നടത്തി ഏഷ്യൻ ഇൻഫ്രാസ്ട്രെക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ മൂന്നാമത് വാർഷിക യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുബൈയിൽ ഉദ്ഘാടനം ചെയ്യും അടിസ്ഥാനസൌകര്യമേഖലയ്ക്കും ആധുനിക തയ്ക്കും സഹകരണത്തിനും ധനസമാഹരണം എന്നതാണ് ഈ വർഷത്തെ യോഗത്തിന്റെ വിഷയം ഉദ്ഘാടന ചടങ്ങിന് ശേഷം ബിസി നസ് നേതാക്കളുമായും വ്യവസായ തലവന്മാരുമായും പ്രധാനമന്ത്രി കൂടി ക്കാഴ്ച നടത്തും സാമ്പത്തിക വളർച്ച അടിസ്ഥാനസൌകരൃ വികസനം നിക്ഷേപം തൊഴിലുകൾ സൃഷ്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും

തടി ഇതര വന ഉത്പന്നങ്ങളുടെ സാധ്യത കൾ ഉപയോഗപ്പെടുത്തി ആദിവാസി വിഭാഗങ്ങൾക്ക് ഉപജീവനമാർഗ്ഗം ഒരുക്കുകയാണ് വൻ ധൻ ദൌത്യത്തിന്റെ ലക്ഷ്യം മൂന്നു ഘട്ടങ്ങളിലെ മൂല്യവർദ്ധനയിലൂടെയാണ് പദ്ധതി ആദിവാസികളുടെ വരുമാനം ഉറപ്പു വരുത്തുന്നത് അട്ടപ്പാടി ആദിവാസി മേഖലയിൽ സഹകരണ വകുപ്പിന്റെ നേതൃത്വ ത്തിൽ സ്മഗ്ര ആരോഗ്യ പദ്ധതിക്ക് ഇന്ന് തുടക്കംകുറിക്കും മന്ത്രി കടകംപള്ളി സൂരേന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും പെരിന്തൽമണ്ണ ഇ എം എസ് സഹ്കരണ ആശുപത്രിയുമായി സഹ്കരിച്ചാണ് പദ്ധതിനട പ്പാക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമല്ലാത്ത രോഗചി കിത്സ ഇ എം എസ് ആശുപത്രിയിൽ നിന്നും നൽകും ഗർഭിണികൾക്കും മുലയൂട്ടൂന്ന അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യും ബ്ലേഡ് പ്ലിശക്കാരിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കാൻ സഹക രണ വ്കുപ്പ് കുടുംബശ്രീയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന മുറ്റത്തെ മുല്ല ലഘുവായ്പാ പദ്ധതി പാലക്കാട് മണ്ണാർക്കാട് മന്ത്രി കടകംപള്ളി സുർ ന്ദ്രൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളിലൂടെ വായ്പ എടുക്കുന്നതിന് വിമുഖത പുലർത്തുന്നവരുടെയും കൊള്ളപ്പലിശക്കാരിൽ നിന്നും വായ്പയെടുത്ത് കടക്കെണിയിലാകുന്നവരുടെയും വീട്ടുമുറ്റത്ത് ചെന്ന് ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് ലഘുവായ്പ നൽകുന്നതാണ് പദ്ധ തി ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് മനുഷ്യക്കടത്ത് വിരുദ്ധദിനം

ആദ്യം കേൾക്കൂ എന്ന സന്ദേശമുയർത്തിയാണ് ഇത്തവണ ദിനാച രണം കുട്ടികൾക്കും യുവാക്കൾക്കും പറയാനുള്ളത് കേൾക്കുകയാണ് ആരോഗ്യകരമായും സുരക്ഷിതമായും അവരെ വളരാൻ സഹായിക്കുന്ന തിന്റെ ആദ്യപടിയെന്നും ഇത്തവണത്തെ ദിനാചരണം ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനതലത്തിൽ മികച്ച രീതിയിൽ ലഹരിവിരുദ്ധ പ്രവർത്തനം നട ത്തിയ സന്നദ്ധ സംഘടനയെയും സന്നദ്ധ പ്രവർത്തകനെയും മികച്ച ലഹ രിവിരുദ്ധ സ്കൂൾ കോളേജ് ക്ലബ്ബ് അംഗങ്ങളെയും എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് ആദരിക്കും ഉച്ചയ്ക്ക് നിശാഗ്ന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിത രണം ചെയ്യും തിരുവനന്തപുരത്ത് ആന്റി നാർക്കോട്ടിക് ആക്ഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യുടെയും വിവിധ ഗവ്ൺമെന്റ് വകുപ്പുകളുടെയും സംയുക്താഭിമു ഖ്യത്തിൽ രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ ലോകമയക്കുമരുന്ന് വിരു ദ്ധദിനം ആചരിക്കും നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാ ടനം ചെയ്യും അന്താരാഷ്ട്ര ലഹരി മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനാചരണത്തോടനുബ ന്ധിച്ച് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിന്റെ നേതൃത്വത്തിൽ കൊല്ലം കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇന്ന് രാവിലെ ബോധവൽക്കരണ മാജിക്ഷോ നടത്തും കേരള പ്രദേശ് ഗാന്ധി യുവ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിക്കും

കുവൈറ്റിലെ ആരോഗ്യമന്ത്രാലയത്തിൽ കേരളത്തിൽ നിന്ന് നഴ്സ് നിയ മനത്തിൽ ന്ിലനിന്നിരുന്ന ്തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും ഒഡെപെക്ക് നോർക്ക വഴി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ആരംഭിക്കുന്നതിനും പ്രാരംഭ ചർച്ച കൾക്കായാണ് മന്ത്രിയും സംഘവും കുവൈറ്റിലെത്തിയത് കുവൈറ്റിലെ മലയാളി ബിസിനസ്സ് സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ആശുപത്രികൾക്കായി ഗുണനിലവാരം കുറഞ്ഞ കൈയ്യുറകൾ വാങ്ങി യെന്ന ആരോപണം സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി കെ കെ ശൈലജ കേരള മെഡിക്കൽ സർവ്വീസസ് കോർപ്പ റേഷൻ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ആരോപണ വിധേയമായ കമ്പനി യിൽ നിന്ന് സംഭരിച്ച കൈയ്യുറകളുടെ വിതരണം നിർത്തിവെക്കാനും വിത രണം ചെയ്തവ തിരികെ വരുത്താനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഗുണനില വാരം കുറഞ്ഞ കൈയ്യുറകൾ നിപ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി രോഗി പരിചരണത്തിൽ ഏർപ്പെട്ടിരുന്ന ആരോഗ്യ പ്രവവർത്തകർക്ക് നൽകി യെന്ന പരാമർശം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി തരുവനന്തപുരത്ത് അറി യിച്ചു മലപ്പുറത്ത് നിപ സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന മൂന്ന് പേർക്ക് നിപയല്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു അതിനിടെ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലും മഞ്ചേരിയിലും രണ്ടുപ്പേർ പനി ബാധിച്ച് മരി ച്ചും ഇനി ലോകകപ്പിലേക്ക്

ഇന്നലെ നടന്ന മത്സരത്തിൽ റഷ്യയെ തോൽപിച്ച് ഉറുഗെ എ ്ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സ്പെയിൻ മൊറോക്കോ പോർച്ചുഗൽ ഇറാൻ മത്സരം സമനിലയിൽ കലാശിച്ചു

ജില്ലാ ഭരണകൂടവും പൊതു വിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് കട്ടിപ്പാറ കരിഞ്ചോലമലയിൽ വിദ ഗ്ദസംഘം വീണ്ടും പരിശോധന നടത്തി ഉരുൾപൊട്ടലിൽ വീട് തകർന്ന ഭാഗവും കല്ലും ചളിയും വന്നടിഞ്ഞ ഭാഗങ്ങളിലും ഒരാഴ്ച മുമ്പ് നടത്തിയ പരിശോധനയുടെ തുടർച്ചയായാണ് സബ് കലക്ടർ വി വിഘ്നേശ്വരിയുടെ നേതൃത്വത്തിൽ സംഘം പരിശോധനയ്ക്കെത്തിയത് ഉരുൾപൊട്ടലിന്റെ പ്രഭ വകേന്ദ്രത്തിലും നിർമ്മാണ പ്രവൃത്തി നടന്നു എന്നാരോപിക്കപ്പെടുന്ന് പ്രദേ ശത്തുമാണ് പരിശോധന നടത്തിയത് പെട്രോളിയം ആന്റ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിന്റെ ആഭി മുഖ്യത്തിൽ സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിയിലെ നിക്ഷേപ അവസര ങ്ങളെകുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായി കൊച്ചിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു

സംസ്ഥാനത്തെ ഭൂരേഖ നവീകരണ ജോലികൾ സംബന്ധിച്ച പ്രശ്ന ങ്ങൾ പരിഹരിക്കാനും ആധുനിക വൽക്കരണ പ്രവർത്തനങ്ങൾ വിലയിരു ത്താനുമായി കേന്ദ്ര സംഘം കേരളത്തിലെത്തി സംഘം തിരുവനന്തപുരത്ത് ഇന്ന് ബന്ധപ്പെട്ട വകുപ്പുകളിലെ പ്രധാന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും ഭിന്നശേഷിക്കാരായ വിനോദ സഞ്ചാരികൾക്ക് വേണ്ടി സംസ്ഥാന ടൂറിസം വകുപ്പും ഉത്തരവാദിത്വ ടൂറിസം മിഷനും ചേർന്ന് ബാരിയർ ഫ്രീ കേരള പദ്ധതി നടപ്പാക്കും സംസ്ഥാന തല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവ്വഹിക്കും കണ്ണൂർ കേളകത്ത് ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു

പനിബാധിതരുടെ എണ്ണം കൂടിവരുന്ന സാഹചര്യത്തിൽ ആരോ ഗൃവകുപ്പ് കർശന നടപടികൾ സ്വീകരിച്ചുവരികയാണ് പത്തനംതിട്ട ആറൻമുളയിൽ പമ്പാനദിയിൽ ഞായറാഴ്ച രാത്രി ഒഴു ക്കിൽപെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കിടങ്ങന്നൂർ സ്വദേശി സോണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് വിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്ന വാഹനങ്ങളു ടെയും വാഹനത്തിലല്ല എത്തുന്നതെങ്കിൽ ആ വിവരങ്ങളും കൃത്യമായി സ്കൂൾ റജിസ്റ്ററിൽ സ്കൂക്ഷിക്കുവാൻ നോഡൽ ഓഫീസറെ നിയമിക്കാൻ ഏറണാകുളം മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകി മരട് സ്കൂൾ വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം കണ്ണൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് പഠനം നട ത്താൻ നാറ്റ് പാകിന് നിർദ്ദേശം നൽകി നിലവിലെ പദ്ധതിയിൽ ചേർത്താ യിരിക്കും പ്ഠനം നടത്തുക ഒരുമാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേ ശം പത്തനംതിട്ട തിരുവല്ല റെയിൽവേ സ്റ്റേഷനലിൽ ട്രെയിനിൽ എത്തിയ ഇതര സംസ്ഥാനയാത്രക്കാരിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും പൊലീസ് പിടികൂടി ബംഗാൾ സ്വദേശികളായ ഏഴു പേരെ അറ സ്റ്റുചെയ്തു